കെ വിമാനസർവ്വീസുകൾ ശനിയാഴ്ച മുതൽ നിർത്തി വയ്ക്കുന്നതാർയി എയർ ഇന്ത്യ

പ്രാദേശികതലത്തിൽ നടപടികൾ ശക്തമാക്കി

എന്നാൽ രാജ്യത്ത് പൂക്കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന

എന്നാൽ ആശങ്കയുയർത്തിക്കൊണ്ട് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരികയാണ്

മിക്ക സംസ്ഥാനങ്ങളിലും ചികിൽസയിലുള്ള രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും മരണ നിരക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്

വൻ തോതിലുള്ള രോഗവ്യാപനം രോഗമുക്തി നിരക്ക് കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്

കെ യിലേക്കും തിരിച്ചുമുള്ള വിമാനസർവ്വീസുകൾ ശനിയാഴ്ച മുതൽ നിർത്തി വയ്ക്കാൻ തീരുമാനിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു

സർവ്വീസുകൾ പുനരാരംഭിക്കുന്നതും പണം തിരിക്ക് ്നൽകുന്നതും ഉൾപ്പെടെ യുള്ള തീരുമാനങ്ങൾ പിന്നീട് പ്രഅറിയിക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു

പ്രധാനമന്ത്രി ഗരീബ് കല്ല്യാൺ യോജന പ്രകാരമാണ് ഇൻഷറൻസ് പദ്ധതി ഏർപ്പെടുത്തിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവൻ നഷ്ട പ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആശ്രിതർക്ക് സുരക്ഷാ കവചമൊരുക്കുന്നതാണ് പദ്ധതിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർധൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

റെംഡെസിവിറിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളുടെ ഇറക്കുമതി തീരുവയും ഒഴിവാക്കി യിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് റെംഡെസിവിർ എത്തിക്കുന്ന കാര്യ ത്തിൽ സർക്കാർ നിഷ്പക്ഷമായ നയമാണ് സ്വീകരിക്കുന്നെതെന്ന് ഫാർമസ്യൂട്ടിക്കൽസ് സെക്രട്ടറി വൃക്തമാക്കി

രാത്രികാല കർഫ്യൂ ഇന്നലെ മുതൽ സംസ്ഥാനത്ത് നിലവിൽ വന്നെങ്കിലും വാരാന്ത്യ ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള നടപടികൾ തൽക്കാലം സ്വീകരിക്കേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം

എറണാകുളം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ഡൌൺ ഏർപ്പെടു ത്താൻ ജില്ലാകളക്ടർ തീരുമാനിച്ചു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലും ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

ഓൺലൈൻ വഴി ചേരുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പൊലീസ് മേധാവിയും പങ്കെടുക്കും സംസ്ഥാനത്തെ പ്രതിദിന കൊവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ആശുപത്രികളോട് സജ്ജമാകാൻ നിർദേശം നൽകി ഇന്നും നാളെയും സംസ്ഥാനത്ത് വീണ്ടും കൂട്ടപ്പരിശോധന തുടരും

ഇന്നലെ ആറ് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ കൂടി തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്

മറ്റന്നാൾ രാത്രി മുതൽ തിങ്കളാഴ്ച പുലർച്ചെട് വരെയാണ് ല്ലോക്ക്ഡൌൺ

സെല്ലുലാർ ജയിലിലേക്കും നേതാജി ദ്വീപിലേക്കുമുള്ള പ്രവേശനം നാലാഴ്ചത്തേക്ക് നിർത്തി വച്ചു

ഹിന്ദു വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമന്റെ ജന്മദിനമാണ് രാമനവമി് രാഷ്ട്രപതി റാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് രാമനവമി ആശംസകൾ നേർന്നു

ദേശീയ പുരോഗതിക്കും പൌരന്മാരുടെ ക്ഷേമത്തിനുമായി സ്തുത്യർഹ സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു

ഇന്ത്യ അമേരിക്ക് ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യവും പ്രാദേശിക സുരക്ഷ്യ സ്ംബന്ധിച്ച സഹകരണവും ഇരുനേതാക്കളും ചർച്ച ചെയ്തു

ഇന്നലെ നടന്ന മത്സര ത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് ആറ് വിക്കറ്റിന് വിജയം നേടി